രജിസ്ട്രേഷൻ ഓഫീസുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നുംപിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് ക്ക്സിൽ മുൻ ഐ

സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു ഫൈസൽ ഫരീദിനെതിരെ എൻ ഐ എ കോടതിയുടെ ജാമ്യമില്ലാ വാറണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും കുറിച്ച് വൃക്തമാക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം ഹയർസെക്കൻറി വൊക്കേഷണൽ ഹയർസെക്കൻറി ഫലം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക്

ബി എസ് ഇ പത്താം ക്ലാസ് ഫലവും നാളെ

സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസമാണ്

കോവിഡ് പകർച്ച വർദ്ധിക്കുന്നതിന്റെ സാഹചരൃത്തിൽ പ്രാദേശിക ഭരണസംവിധാനങ്ങൾ ജനപ്രതിനിധികൾ എന്നിവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു

വില്ലേജ് ഓഫീസർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് തുടങ്ങിയവർ ടീമിന്റെ ഭാഗമാകും

മെഡിക്കൽ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ആരുംതന്നെ കണ്ടെയിൻമെന്റ് സോണിനു പുറത്തേക്ക് പോകാൻ പാടില്ല

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

കോവിഡ് ഇതര രോഹൃങ്ങ്ൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ ടെലിമെഡിസിൻ സംവിധാനവും സാമ്പിൾ ശേഖരണത്തിനായി സ്വാബ് കളക്കഷൻ കേന്ദ്രവ്ടും അ്ടിയന്തര ആവശ്യങ്ങൾക്കായി ഡബിൾ വാഹനവും ക്രുമീക്കിക്കാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകും

പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഉത്തരവിട്ടു ഹൈക്കോടതി സർക്കാർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും കുറിച്ച് വിശദാംശങ്ങൾ വൃക്തമാക്കാൻ ഹൈക്കോടതി കേരള സർക്കാരിന് നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് കേസെടുത്തതിന്റെ വിവരങ്ങളും അറിയിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇത് സംബന്ധിച്ച് നാളെ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് ചീഫ് എസ് മണികുമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി സമരങ്ങളുടെ കാരൃത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും നടപടി എടുക്കുന്നുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു

തടസ്സമില്ലാതെ ഓൺലൈൻ സേവനങ്ങൾ ലഭൃമാക്കുന്നതിന് എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഒപ്റ്റിക് ഫൈബർ കണക്ഷനുകൾ നൽകും ആധാര രജിസ്ട്രേഷൻ നടപടികൾ ലളിതവും സുതാര്യവുമാക്കി രജിസ്ട്രേഷൻ ഓഫീസുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും മുഖൃമന്ത്രി പറഞ്ഞു

ജലീൽ സംസ്ഥാനത്ത് ഓപ്പൺ സർവകലാശ്രൂർല് ആരംഭിക്കാൻ സർക്കാർ ഊർജ്ജിത ശ്രമം നടത്തുകയാണ്ണ് മന്ത്രി കെ

ഈ അവസ്ഥക്ക് മാറ്റംവരുമെന്നും ഉന്നത് പ്രിദ്യാഭ്യാസരംഗത്ത് പ്രതീക്ഷിക്കുന്ന മുന്നേറ്റമുണ്ടാക്കാൻ സ്ട്രിധിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ടി സെക്രട്ടറി എം

തിരുവനന്തപുരം കസ്റ്റംസ് ഓഫീസിലെത്തിയ ശിവശങ്കറിനെ ഡി ആർ ഐ

വൈകുന്നേരത്തോടെ പൂജപ്പുരയിലെ വീട്ടിലെത്തി ശിവശങ്കറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു

എ പ്രത്യേക കോടതി ഫൈസൽ ഫരീദിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ദേശീയ അന്വേഷണ ഏജൻസിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്

ഉച്ചക്ക് രണ്ടിന് പ്രഖ്യാപിക്കുന്ന ഫലം ഇൻഫർമേഷൻ പബ്ളിക് റിലേഷൻസ് വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പ്രി

ബി എസ്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പരീക്ഷകളുടെ മാർക്കിന്റെ ശരാശരിയെ അടിസ്ഥാനമാക്കിയും ഇന്റേണൽ മാർക്കും കണക്കിലെടുത്താണു ഫലം തയാറാക്കിയിരിക്കുന്നത് ഏറ്റവും മികച്ച മാർക്ക് ലഭിച്ച മൂന്നു വിഷയങ്ങളുടെ ശരാശരി ആയിരിക്കും റദ്ദാക്കിയ പരീക്ഷകളുടെ മൂല്യനിർണയത്തിനായി എടുക്കുക

അതി തീവ്ര കോവിഡ് മേഖലകളിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവിടെ പ്രത്യേക പരീക്ഷാ കേന്ദ്രം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്

നടത്തിയ വെബിനാറിലാണ് പ്രഖ്യാപനം നടത്തിയത്

ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൂലധനത്തിന്റെ അഭാവമാണ് സർക്കാർഅർദ്ധസർക്കാർപ്രമുഖ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും വർക്ക് ഓർഡർ ഉള്ളവർക്കായിരിക്കും വായ്പ സൌകര്യം ഉണ്ടാവുകയെന്ന് മന്ത്രി അറിയിച്ചു

ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടു പോകുന്നതിനിടയിൽ മാധ്യമങ്ങൾക്കു മുമ്പിലാണ് സൂരജ് കുറ്റസമ്മതം നടത്തിയത്

സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും കോൺഗ്രസ് നീക്കം ചെയ്തു

ഇന്ന് മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം